ലൈഫ് മിഷനിലൂളട് വീട് ലഭിച്ചു കുടുംബങ്ങളുടെ ആത്മ നിർവൃതിയാണ് ഗവൺമെന്റിന്റെ നേട്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്ര മോദി ഗവൺമെന്റിന്റെ വികസന പദ്ധിതകളുടെ ഗുണഭോക്താക്കളിൽ വലിയൊരള്വും ന്യൂനപക്ഷ വിഭാഗങ്ങളാണെന്ന് കേന്ദ്ര് വിദ്ദേശ്കാര്യ സഹമന്ത്രി വി മുരളീധരൻ കൊച്ചിയിൽ കൊറോണ് നിരീക്ഷണത്തിലിരിക്കെ മരിച്ചയാൾക്ക് രോഗബാധയില്ലെന്ന് സ്ഥിരീകരിച്ചതായി മന്ത്രി കെ കെ ശ്രൈലജ് സംസ്ഥാനത്ത് കൊറോണ ഭീതി ഒഴിഞ്ഞെന്നും മന്ത്രി പാലാരിവട്ടം അഴിമതിക്കേസിൽ മുൻ പൊതുമരാമത്ത് മന്ത്രി ഇബ്രാഹീം കുഞ്ഞിനെ തിരുവനന്തപുരത്ത് വിജിലൻസ് ചോദ്യം ചെയ്യുന്നു ക്രൈസ്റ്റ് ചർച്ചിൽ ന്യൂസീലൻഡിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ച ലൈഫ് പദ്ധതിയിൽ രണ്ടുലക്ഷം വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനം ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് നടക്കും പുത്തരി ക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണ റായി വിജയൻ പ്രഖ്യാപനം നിർവഹിക്കും തിരുവനന്തപുരം ജില്ലാ ലൈഫ് ഗുണഭോക്തൃ സംഗമവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനതല പ്രഖ്യാപനം നടക്കുന്ന സമയത്തുതന്നെ പഞ്ചായ ത്തുതല ഗുണഭോക്തൃ സംഗമവും നടത്തും ചടങ്ങിൽ മന്ത്രി എ

മന്ത്രി മാരും പ്രതിപക്ഷ നേതാവും സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാനും ജനപ്രതിനിധികളും വകുപ്പുതല ഉദ്യോഗ സ്ഥരും പങ്കെടുക്കും സംസ്ഥാന ഗവൺമെന്റിന്റെ സമ്പൂർണ പാർപ്പിട സുരക്ഷാ പദ്ധ തിയായ ലൈഫിൽ കേരളത്തിലെ വീടില്ലാത്ത എല്ലാ കുടുംബ ങ്ങൾക്കും വീടും അന്തസ്സോടെ ജീവിക്കാൻ ആവശ്യമായ സാഹ ചര്യങ്ങളും ഒരുക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം ലൈഫ് പദ്ധതിയിലൂടെ സ്വന്തമായി അടച്ചൂറപ്പുള്ള വീട് ലഭിച്ച രണ്ടു ലക്ഷത്തി പതിനാലായിരം കുടുംബങ്ങളുടെ ആത്മനിർവൃതിയാണ് ഗവൺമെന്റിന്റെ നേട്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ലൈഫ് പദ്ധതിയിൽ വിവിധ് തദ്ദേശസ്ഥാപനങ്ങൾ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയത്

ലിസ്റ്റിൽ വരാത്തവരും എന്നാൽ വീടില്ലാത്തവരുമായ കുടുംബങ്ങളെ അടുത്ത ഘട്ടത്തിൽ പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ലൈഫ് മിഷനിൽ വീട് ലഭിച്ച തിരുവനന്തപുരം കരകുളം പഞ്ചായത്തില്ലെ പഴയാറ്റിൻകര കാവുവിളയിൽ ഓമനയുടെ വീടിന്റെ ഗൃഹ്യപ്രവേശന ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങ ളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാന ഗവൺമെന്റിന്റെ സമ്പൂർണ ഭവന പദ്ധതിയായ ലൈഫ് മിഷന്റെ ഭാഗമായി കോഴിക്കോട് നഗരസഭാ ഭവന പൂർത്തീകരണ പ്രഖ്യാപനം ഇന്ന് നടക്കും വൈകീട്ട് നാലിന് ടാഗോർ ഹാളിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ പ്രഖ്യാപനം നിർവഹിക്കും

ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ ഗുണഭോക്താക്കളുടെ ഒത്തു ചേരലും ഇതോടൊപ്പം നടക്കും

നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ എല്ലാ വികസന പദ്ധതികളുടെയും ഗുണഭോക്താക്കളിൽ വലിയൊരു അളവ് ന്യൂനപക്ഷ വിഭാഗങ്ങളാ ണെന്നും ഇതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന മാതൃകയെന്നും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ പാലക്കാട്ട് പട്ടാമ്പി നഗരസഭയിൽ പൂർത്തിയാക്കിയ വീടുകളുടെ ഉദ്ഘാടനം നിർവ ഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഗവൺമെന്റീന് ജനങ്ങളുടെ വിവ രങ്ങൾ ഒന്നും നൽകരുതെന്ന് പറയുന്നവർ രാ്ജ്യത്തിന്റെ വികസന ത്തിനെ തടസ്സപ്പെടുത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു കൊച്ചിയിൽ കൊറോണ സംശയിച്ച് നിരീക്ഷണത്തി ലിരിക്കെ മരിച്ചയാൾക്ക് കൊറോണയില്ലെന്ന് സ്ഥിരീകരിച്ചതായി മന്ത്രി

കെ ശൈലജ പറഞ്ഞു ഇക്കാരൃത്തിൽ വിശദമായ പരിശോധന കൾക്കായി പോസ്റ്റ്മോർട്ടം ഉൾപ്പടെ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പാണ്ഞു സംസ്ഥാനത്ത് കൊറോണ ഭീതി ഒഴി ഞ്ഞിട്ടുണ്ട് എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ കൊറോണ വ്യാപിക്കു ന്നതിനാൽ ജാഗ്രത തുടരും കൊറോണ മുക്തമെന്ന് പ്രഖ്യാപിക്കാ ത്തത് ഇതുകൊണ്ടാണെന്നും മന്ത്രി വൃക്തമാക്കി കണ്ണൂർ പ്യ്യന്നൂർ സ്വദേശി ജെയ്നേഷ് ആണ് കൊറോണ സംശ യിച്ച് എറണാകുളം കളമശ്ശേരി ഗവ മെഡിക്കൽ കോളജ് ആശുപ ത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ അർദ്ധരാത്രി മരിച്ചത് ആല പ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ ആദ്യ സാമ്പിൾ പരി ശോധനയിൽ ഫലം നെഗറ്റീവായിരുന്നു

എട്ടുപേരെ നിരീക്ഷണപട്ടികയിൽ നിന്ന് ഒഴിവാക്കി

അന്നത്തെ ചോദ്യം ചെയ്യലിൽ ഇബ്രാഹിം കുഞ്ഞ് നൽകിയ മൊഴിയിലെ വസ്തുതകൾ പരിശോധിച്ച ശേഷമാണ് വീണ്ടും ഹാജരാകാൻ നോട്ടീസ് നൽകിയത് കേസിൽ മൂന്നാം തവണയാണ് ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്യുന്നത് നടിയെ ആക്രമിച്ച കേസിൽ സാക്ഷിവീസ്താർത്തിന് ഹാജരാ കാത്തതിനാൽ നടൻ കുഞ്ചാക്കോ ബോബ്നെതിരെ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു ഇന്നലെ സാക്ഷി വിസ്താരത്തിന് ഹാജ രാകാൻ കുഞ്ചാക്കോ ബോബന് സ്മൻസ് നൽകിയിരുന്നു എന്നാൽ സമൻസ് കൈപ്പറ്റുകയോ അവധി അപേക്ഷ നൽകുകയോ ചെയ്തി രുന്നില്ല ഇതേ തുടർന്നാണ് അഡ്ീഷ്ണൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസ് വാറണ്ട് പുറപ്പെടുവിച്ചത് സംസ്ഥാനത്ത് പാൽ പ്രതിസന്ധി മറികടക്കാനായി മിൽമയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും പാൽവില ലിറ്ററിന് ആറു രൂപ വരെ വർധിപ്പിക്കണമെന്ന് മേഖല യൂണിയനുകൾ മിൽമയക്ക് ശുപാർശ നൽകിയതിനെ തുടർന്നാണ് യോഗം ചേരുന്നത് കാലിത്തീറ്റയുടെ വില വർധന വേനൽക്കാലത്തെ പാൽ ക്ഷാമം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടിയ വിലയ്ക്ക് പാൽ ഇറക്കുമതി ചെയ്യേണ്ടിവരുന്നു തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മേഖലാ യൂണിയനുകൾ വില വർധന ആവശ്യപ്പെടുന്നത് കൊല്ലം നെടുമ്പന ഇളവൂരിൽ ഇത്തിക്കരയാറിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ ആറു വയസ്സു കാരി ദേവനന്ദയുടെ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നതിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു

ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് മാർച്ച് ഒൻപതിന് സഭ ചേരില്ല ക്രൈസ്റ്റ് ചർച്ചിൽ ന്യൂസീലൻഡിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ചു

എൽ ഫുട്ബോൾ ആറാം സീസണിലെ സെമിഫൈ നൽ മൽസരങ്ങൾ ഇന്ന് തുടങ്ങും

സി ചെന്നൈയിൻ എഫ് സിയെ നേരിടും ഐലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള കോഴിക്കോട്ട് ഇന്ന് മിനർവ പഞ്ചാബിനെ നേരിടും വൈകീട്ട് ഏഴിന് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം നിലവിൽ മിനർവ പഞ്ചാബ് രണ്ടാം സ്ഥാനത്തും ഗോകുലം കേരള ഏഴാംസ്ഥാനത്തുമാണ് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗ് ജേതാക്കളായ ഗോകുലം കേരള ടീമിന് വൈകീട്ട് കോഴിക്കോട്ട് സ്വീകരണം നൽകും കോർപ്പ റേഷൻ സ്റ്റേഡിയത്തിലാണ് സ്വീകരണ പരിപാടി സംസ്ഥാനത്ത് സെപ്റ്റേജ് മാലിന്യ സംസ്കരണത്തിന് വിദേശ മാതൃകയിൽ ആധുനിക സംവിധാനത്തെ കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കുന്നതായി മന്ത്രി കെ

ശൈലജ പറഞ്ഞു

ആർദ്രം പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ ആശുപത്രികൾ ഹൈടെക്കാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഹരിത കേരളം പദ്ധതിയുടെ വിജയത്തിനായി വൃക്ഷത്തൈകൾ സമർപ്പിക്കുന്നതിന് ഐ

എം വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഗ്രീൻ കോഴിക്കോട് മാസ്റ്റർ പ്ലാൻ ജില്ലാ പഞ്ചായത്തിന് സമർപ്പിച്ചു കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ജീസം ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന വൃക്ഷത്തൈ പരിപാലന്റ് മൽസരത്തിന് വേണ്ടിയാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് ദ്രി സംസ്ഥാനത്ത് ഉടൻ മഴ ലഭിച്ചില്ലെങ്കീൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി പാലക്കാട് പുനലൂർ കോട്ടയം എന്നിവിടങ്ങളിലാണ് ഉഷ്ണതരംഗം അനുഭവപ്പെടുക ി മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിം അദ്ദേഹത്തെ അനുസ്മരിച്ചു അച്ചടക്കവും തത്ത്വങ്ങളും അടിസ്ഥാനമാക്കി യായിരുന്നു മൊറാർജി ദേശായിയുടെ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

മന്തി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും സ്വർണ്ണ വില കുറഞ്ഞു

ബി എസ് എൻ എൽ കോഴിക്കോട് വടകര വയനാട് മേഖലകളിലെ വൈമാക്സ് സേവനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിർത്തലാക്കും

തൃശൂർ വലപ്പാട് നിയന്ത്രണം വിട്ട ലോറി ഇരുചക്ര വാഹനത്തിൽ ഇടിച്ച് തമിഴ്നാട് നാമക്കൽ സ്വദേശികളായ ദമ്പതികൾ മരിച്ചു ഇന്ന് രാവിലെ ആറ് മണിയോടെയായിരുന്നു അപകടം